കെ ശൈലജ

എൽ ക്രിക്കറ്റിൽ രാജസ്ഥാൻ റോയൽസ് പ്ലേ ഓഫ് കാണാതെ പുറത്തായി

വിശദാശംശങ്ങളുമായി ഹബീബ് റഹ്മാൻ

ന്യൂസ് ഡെസ്ക് ആകാശവാണി രുര നിപ്പയുമായി താരതമ്യം ചെയ്യുമ്പോൾ കോവിഡിന് മരണസാധ്യത കുറവാണെങ്കിലും വ്യാപന നിരക്ക് പതിന്മടങ്ങ് കൂടുതലാണെന്നും അതിനാൽ മരണസംഖ്യ ഉയരാനിടയാകുമെന്ന് നാം എപ്പോഴും ഓർമിക്കണമെന്നും മന്ത്രി കെ

കോഴിക്കോട് ജനറൽ ആശുപത്രി ഐ

രുര കോവിഡ് രോഗികളുടെ എണ്ണം വർധിച്ചാൽ സ്വീകരിക്കേണ്ട നടപടികളെക്കുറിച്ച് തിരുവനന്തപുരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ മന്ത്രി കെ

സെപ്റ്റംബറിലും ഒക്ടോബറിലും കോവിഡ് രോഗികളുടെ എണ്ണത്തിൽ തിരുവനന്തപുരത്ത് ഏറെ വർധനയുണ്ടായിരുന്നു ഇനിയും രോഗികളുടെ എണ്ണം കൂടുന്ന സാഹചര്യം വന്നാൽ ഫലപ്രദമായി നേരിടാൻ മെഡിക്കൽ കോളേജിനെ സജ്ജമാക്കാനാണ് അവലോകന യോഗം ചേർന്നത്

ജില്ലയിൽ നിരോധനാജ്ഞ നിലവിലിരിക്കെ നിയന്ത്രണങ്ങളില്ലാതെയും സാമൂഹിക അകലം ഉൾപ്പെടെ കൊവിഡ് പെരുമാറ്റച്ചട്ടങ്ങൾ പാലിക്കാതെയും വിനോദ സഞ്ചാര കേന്ദ്രങ്ങളിൽ ആളുകൾ തടിച്ചുകൂടുന്നത് രോഗവ്യാപനം ശക്തിപ്പെടുത്തും എന്നതിനാലാണ് ബീച്ചുകളിൽ സന്ദർശകർക്ക് വിലക്കേർപ്പെടുത്തുന്നതെന്ന് ജില്ലാ കലക്ടർ വ്യക്തമാക്കി രംഭ കൊവിഡ് മഹാമാരി ഉൾപ്പെടെ പ്രതിസന്ധികൾക്കു മുന്നിൽ തോറ്റു പിൻമാറുകയല്ല മറിച്ച് കൂടുതൽ കരുത്താർജിച്ച് മുന്നോട്ട് പോവുകയാണ് വേണ്ടതെന്ന് സംവിധായകനും തിരക്കഥാകൃത്തുമായ റജി നായർ ആകാശവാണിയോട് പറഞ്ഞു

കൊല്ലം ജില്ലാ ആശുപത്രിയിൽ നിർമാണം പൂർത്തീകരിച്ച ഡയാലിസിസ് യൂണിറ്റിന്റെ ഉദ്ഘാടനം നിർവ്വഹിക്കുകയായിരുന്നു മന്ത്രി

തൊഴിൽ ലഭ്യമാക്കിയതിന്റെ ഓൺലൈൻ പ്രഖ്യാപനം മന്ത്രി ഡോ

പ്രതീക്ഷയിൽ കവിഞ്ഞ നേട്ടമാണിതെന്ന് മന്ത്രി പറഞ്ഞു

മന്ത്രി ജെ മേഴ്സികുട്ടിയമ്മ നിയമന ഉത്തരവ് കൈമാറി

രും രാജ്യത്ത് ഖാരിഫ് നെല്ല് സംഭരണം രണ്ട് കോടി മെട്രിക് ടൺ കവിഞ്ഞു പഞ്ചാബ് കേരളം ഹരിയാന ഉത്തർപ്രദേശ് ഉത്തരാഖണ്ഡ് തമിഴ്നാട് ചണ്ഡീഗഢ് ജമ്മു കശ്മീർ എന്നിവിടങ്ങളിൽ സംഭരണം തുടരുകയാണ്

രുഭ സംസ്ഥാനത്ത് പ്ലസ് വൺ വിദ്യാർത്ഥികൾക്ക് ഓൺലൈൻ ക്ലാസുകൾ ഇന്ന് തുടങ്ങും

പ്ലസ് വണ്ണിലേക്ക് പ്രവേശിക്കുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും മന്ത്രി സി രവീന്ദ്രനാഥ് ആശംസ നേർന്നു രുര ലഹരി മരുന്ന് കേസുമായി ബന്ധപ്പെട്ട സാമ്പത്തിക ഇടപാടിൽ കസ്റ്റഡിയിൽ കഴിയുന്ന ബിനീഷ് കോടിയേരിയെ ഇന്ന് ബംഗുളൂരു സെഷൻസ് കോടതിയിൽ ഹാജരാക്കും

എൽ റൈഡേഴ്സിനോട് വൻ പരാജയം ഏറ്റുവാങ്ങി രാജസ്ഥാൻ റോയൽസ് പ്പേ ഓഫ് കാണാതെ പുറത്തായി

പ്പേ ഓഫ് ഉറപ്പാക്കാൻ കൊൽക്കത്തയ്ക്ക് ശേഷിക്കുന്ന രണ്ടു മത്സരങ്ങൾ നിർണായകമാവും അബൂദാബിയിൽ നടന്ന മത്സരത്തിൽ ചെന്നൈ സൂപ്പർ കിങ്സ് കിങ്സ് ഇലവൻ പഞ്ചാബിനെ ഒമ്പത് വിക്കറ്റിന് തോൽപ്പിച്ചു ഇന്ന് അബൂദാബിയിൽ ഡൽഹി ക്യാപ്പിറ്റൽസ് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിനെ നേരിടും ദ്ദേ എല്ലാവർക്കും ആരോഗ്യം ഉറപ്പു വരുത്താൻ കായിക പരിശീലനങ്ങളും യോഗയും സഹായകമാണെന്ന് മന്ത്രി ഇ

കാസർകോട് പീലിക്കോട്ട് സന്തോഷ് ട്രോഫി താരം കെ പി രാഹുലിന് കായിക വകുപ്പ് നിർമിച്ചു നൽകിയ വീടിന്റെ താക്കോൽദാനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി രുര ഭിന്നശേഷി സമഗ്ര ശാക്തീകരണ പദ്ധതിയായ എനേബിളിങ് കോഴിക്കോട് പദ്ധതി പ്രഖ്യാപനം ഇന്ന് ഉച്ചയ്ക്ക് രണ്ടിന് മന്ത്രി കെ

ശൈലജ വീഡിയോ കോൺഫറൻസ് വഴി നിർവഹിക്കും ജില്ലയിലെ ആശുപത്രികളിൽ നവജാത ശിശുക്കളുടെ കേൾവി പരിശോധന സാർവത്രികമാക്കുന്നതിന് ഇന്ത്യൻ പീഡിയാട്രീഷ്യൻ അക്കാദമിയുടെ നേതൃത്വത്തിൽ തുടങ്ങിയ ഹിയറിങ് ഫ്രണ്ട്ലി കോഴിക്കോട് പദ്ധതിയുടെ പ്രഖ്യാപനവും മന്ത്രി നിർവഹിക്കും

ജില്ലയിൽ ഭിന്നശേഷി മേഖലയിൽ നടപ്പാക്കുന്ന വിവിധ പദ്ധതികളെ ഏകോപിപ്പിച്ച് വൈകല്യങ്ങൾ യഥാസമയം കണ്ടെത്തുക അവർക്ക് ആവശ്യമായ ചികിത്സാപുനരധിവാസ സേവനങ്ങൾ സാമൂഹ്യാധിഷ്ഠിത കേന്ദ്രങ്ങൾ വഴി നൽകുക ജില്ലയിലെ മുഴുവൻ കെട്ടിടങ്ങളും പൊതു ഇടങ്ങളും ഭിന്നശേഷി സൌഹൃദമാക്കുക തുടങ്ങിയവയാണ് പദ്ധതി ലക്ഷ്യമിടുന്നത് രംഭ പയ്യോളി നഗരസഭ നവീകരിച്ച ഓഫീസ് കെട്ടിടത്തിന്റെ ഉദ്ഘാടനം മന്ത്രി ടി

മുരളീധരൻ എം പി കൈമാറി

രംഭ ഈ ഗവൺമെന്റിന്റെ കാലത്ത് അത്യുത്തര മലബാറിന്റെ മുക്കിലും മൂലയിലും വികസനം സാധ്യമായെന്ന് മന്ത്രി ഇ

സുഭിക്ഷ കേരളം പദ്ധതിയുടെ ഭാഗമായി തുടങ്ങുന്ന മാർക്കറ്റിംഗ് ശൃംഖലയുടെ ജില്ലാതല ഉദ്ഘാടനം ചെറുതോണിയിൽ നിർവഹിക്കുകയായിരുന്നു മന്ത്രി ദേഴ പെട്ടിമുടി ദുരന്ത രക്ഷാദൌത്യത്തിലും പുനരധിവാസത്തിലും മനുഷ്യസാധ്യമായതെല്ലാം ഗവൺമെന്റ് ചെയ്തിട്ടുണ്ടെന്ന് മന്ത്രി എം

പുനരധിവാസ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഇടുക്കി കെ ഡി എച്ച് വില്ലേജിലെ കുറ്റിയാർവാലിയിൽ പട്ടയവിതരണവും വീടുകളുടെ തറക്കല്ലിടീലും നിർവ്വഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി ദുരന്തത്തിൽ മരണപ്പെട്ടവരുടെ ബന്ധുക്കൾക്ക് നഷ്ടപരിഹാരം നൽകുന്നതിന് നടപടിക്രമം ഈ മാസം പൂർത്തിയാക്കുമെന്ന് ജില്ലാകലക്ടർ എച്ച്

രുര കേരള സ്റ്റാർട്ട് അപ്പ് മിഷൻ സംഘടിപ്പിച്ച വനിത സ്റ്റാർട്ട് അപ്പ് ഉച്ചകോടി കൊച്ചിയിൽ സംസ്ഥാന ഐ ടി സെക്രട്ടറി മുഹമ്മദ് വൈ സഫീറുള്ള ഉദ്ഘാടനം ചെയ്തു

സ്റ്റാർട്ട് അപ്പ് ഇന്ത്യ ടൈ കേരള ഇന്ത്യൻ വുമൺ നെറ്റ് വർക്ക് എന്നിവയുടെ സഹകരണത്തോടെയാണ് ഉച്ചകോടി സംഘടിപ്പിച്ചത്

സി സി പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രന്റെ സ്ത്രീ വിരുദ്ധ പരാമർശത്തിനെതിരെ വനിതാ കമ്മീഷൻ സ്വമേധയാ കേസ് എടുത്തു മുല്ലപ്പള്ളി രാമചന്ദ്രൻ അടിയന്തരമായി സ്ത്രീ വിരുദ്ധ പ്രസ്താവന പിൻവലിച്ച് മാപ്പ് പറയണമെന്ന് കമ്മീഷൻ അധ്യക്ഷ എം സി ജോസഫൈൻ ആവശ്യപ്പെട്ടു